രണ്ടുദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലേക്ക് പോകും

സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് പദ്ധതിയില്ലെന്ന് കേന്ദ്രമന്ത്രി രാജൃവർദ്ധൻ റാത്തോഡ്

ബീജിംഗിൽ നടന്ന രണ്ടാമത് ഇന്ത്യ ചൈന സമുദ്രകാര്യ ചർച്ച സമുദ്രസുരക്ഷ വിലയിരുത്തി

തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റണിൽ പി

വാരണാസി അസംഗർ മിർസാപൂർ ജില്ലകൾ സന്ദർശിക്കുന്ന അദ്ദേഹം വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും

ഞായറാഴ്ച പ്രധാനമന്ത്രി മിർസാപൂറിൽ ബെൻസാഗർ കനാൽ പ്രോജക്ട് രാഷ്ട്രത്തിനു സമർപ്പിക്കും മിർസാപൂർ മെഡിക്കൽ കോളേജിന് ശ്രീ മോദി തറക്കല്ലിടും

ഭരണഘടനാ വിരുദ്ധമായ ഭാഷയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രയോഗിക്കുന്നതെന്ന് ശശിതരൂർ എം പിയുടെ ഹിന്ദു പാകിസ്ഥാൻ പ്രസ്താവനയെ പരാമർശിച്ച് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ജനങ്ങളുടെ ഇടപെടൽ പരിശോധിക്കാനുള്ള ഗ്വൺമെന്റിന്റെ താല്പര്യം സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം മറുപടി നല്കാനാണ് കോടതി ആവശ്യപ്പെട്ടത് തൃണമുൽ കോൺഗ്രസ് അംഗം മഹുവാമൊയ്തു നല്കിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്

സാമൂഹൃ മാധൃമങ്ങൾ ശക്തമാണ് അവ സ്വയം നിയന്ത്രിക്കേണ്ടതാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾ സാമൂഹൃമാധൃമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായി

രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വിട്ടു വീഴ്ചക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീവിജയ

എല്ലാവർക്കും സ്വാതന്ത്രൃം ലഭിക്കുന്നതാണ് നമ്മുടെ രാജൃത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് ശ്രീ രാജ്യവർധൻ റാത്തോഡ് പറഞ്ഞു ജമ്മുകാശ്മീരിലുള്ള ഒരു വിഭാഗം എന്താണ് അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല

അതാണ് തീവ്രവാദത്തിലേക്ക് അവരെ നയിക്കുന്നത്

എന്നാൽ ഭരണഘടന സംരക്ഷിക്ക്ട്ന്റുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്

താജ്മഹൽ ലേ പാലസ് അജന്താ ഗുഹകൾ എന്നിവ ഒഴികെയുള്ള പൈതൃക സ്മാരകങ്ങളിൽ ചിത്രങ്ങൾ എടുക്കാനാണ് അനുവാദം നല്കിയിട്ടുള്ളത്

സ്മാരകങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാനും ഇത് വഴിതെളിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഒരു മാസം തുടരുന്ന സർവ്വേ പരിപാടി അടുത്തമാസം ഒന്നിന് ആരംഭിക്കുമെന്ന് കേന്ദ്ര കുടിവെള്ള ശുചീകരണ വകുപ്പ് സെക്രട്ടറി പരമേശ്വര അയ്യർ പറഞ്ഞു

ശ്രൂമീണ് മേഖലയിലെ ശുചിത്വ ഗുണനിലവാരവും സജ്ജീകരണ്ണങ്ങളും സംബന്ധിച്ച് രാജ്യത്തെ എല്ലാ ജില്ലകളിലും സർവ്വേ നടത്തും ശുചിത്വ പരിപാലനത്തിന്റെ എല്ലാ ഘടകങ്ങളും പരിശ്രോധിക്കുമെന്ന് ശ്രീ

ഇപ്പോഴത്തെ വളർച്ചാ പ്രവചനം നിറവേറ്റപ്പെട്ടാൽ ബ്രിട്ടനെ ഇന്ത്യ മറികടക്കും കഴിഞ്ഞ നാലു വർഷമായി രാജ്യം അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായി തുടരുകയാണ് നിക്ഷേപാനുകൂല സാഹചര്യങ്ങളിൽ ഏറെ മുന്നിലായിട്ടുണ്ട്

എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിനായി വിഭവങ്ങൾ കൈമാറുകയാണെന്ന് ധനമന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു

സമുദ്ര സുരക്ഷ സമുദ്രവിഭവസ്തുമ്പത്ത് സഹകരണം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ എസ്സിവ ചർച്ച ചെയ്തു

ഭാവിയിൽ രണ്ടു രാജ്യങ്ങൾക്കും ഇത് ് ഗുണകരമാകുമെന്നും പ്രതിനിധികൾ പറഞ്ഞു വിദേശകാരൃ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി പങ്കജ്ശർമ്മയാണ് ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നല്കിയത്

നദ്ദ വിലയിരുത്തി ഗുണ്ടൂർ ജില്ലയിലെ മംഗലഗിരിയിലാണ് ആൾ ഇന്ത്യാ മെഡിക്കൽ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്

ഇന്നു നടന്ന മത്സരത്തിൽ മലേഷ്യയുടെ സോണിയ ചിയാഹിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ മുന്നേറ്റം

കരുത്തരായ ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്

അതേസമയം സെമിയിൽ അധികസമയത്തെ ഗോളിൽ ഒന്നിനെതിരെ രണ്ടിന് കരുത്തരായ ഇംഗ്ലണ്ടിനെ തോൽപിച്ചാണ് ക്രൊയേഷ്യ ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ കടന്നത്

സെമിയിൽ ഇംഗ്ലണ്ടിന്റെ യുവ ടീമിനെതിരെ തുടക്കത്തിൽ പിന്നിലായെങ്കിലും പതറാതെ മുന്നേറി അവർ ചരിത്രം കുറിക്കുകയായിരുന്നു

മോസ്കോയിലെ ലുഷ്സ്ട്കി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടക്കുന്ന കലാശപോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ഫുട്ട്ബോൾ ലോകം ന്യൂസ് ഡസ്ക് ആകാശവാണി

ലാറ്റ്വിയയുടെ ചെലേനാ ഓസ്റ്റാപെങ്കോയെ തോല്പിച്ചാണ് കെർബർ ഫൈനലിൽ ഇടം നേടിയത്

പുരുഷ സിംഗിൾസ് സെമിയിൽ കെവിൻ ആൻഡേഴ്സൺ ജോൺ ഇസ്നറെയും നൊവാക് ജോക്കോവിച്ച് റഫേൽ നദാലിനെയും ഇന്ന് നേരിടും

ദുരിതബാധിതർക്ക് അടിയന്തിര സഹായം എത്തിക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും അദ്ദേഹം പ്രാദേശിക ഭരണകൂടങ്ങളോട് നിർദ്ദേശിച്ചു